മുതൽ ്കോവിഡ് വാക്സിൻ നൽകാൻ കേന്ദ്ര തീരുമാനം

അനുവദിച്ച മൊറട്ടോറിയം നീട്ടണമെന്ന ആവശ്യം സൂപ്രീംകോടതി തള്ളി

ഇന്നലെ ഡൽഹിയിൽ മന്ത്രിസഭാ യോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കർ മാധ്യമങ്ങളെ അറിയിച്ചതാണിക്കാര്യം അർഹരായ എല്ലാവരും ഉടൻ രജിസ്റ്റർ ചെയ്ത് കുത്തിവയ്പ്പ എടുക്കണമെന്നും ശ്രീ ജാവദേക്കർ അഭ്യർത്ഥിച്ചു

അതേസമയം മഹാരാഷ്ട്ര പഞ്ചാബ് കർണ്ണാടക ഗുജറാത്ത് ഛത്തീസ്ഗഢ് തമിഴ്നാട് എന്നിവിടങ്ങളിൽ കോവിഡ് വ്യാപ്പനം രൂക്ഷമായി തുടരുകയാണ്

മധ്യപ്രദേശ് ഡൽഹി ഹരിയാന രൂജ്സ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലും രോഗവൃാപ്പനം ്ഉയരുകയാണ്

പെട്രോൾ ഡീസൽ എന്നിവയെ ജി

ടി പരിധിയിൽ കൊണ്ടുവരുന്ന കാര്യം സംസ്ഥാനങ്ങൾക്ക് ജി

ടി സമിതിയുടെ പരിഗണനയിൽ കൊണ്ടുവരാമെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബില്ലിന്മേലുള്ള ചർച്ചയിൽ വൃക്തമാക്കി കാർഷിക അടിസ്ഥാന സൌകരൃ വികസന സെസിൽ നിന്നുള്ള വരുമാനംകാർഷിക മ്മേഖലയിലെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി സംസ്ഥാന്റ്ങ്ങൾക്ക് കൈമാറുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി

എസ് ടി നഷ്ടപരിഹാരം പൂർണ്ണമായും സംസ്ഥാനങ്ങൾക്ക് ലഭ്യമാക്കാത്തത് ക്ഷേമപദ്ധതികളെ പ്രതികൂലമായി ബാധിച്ചതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി

ഇതിന്റെ ഭാഗമായി കടപ്പത്ര വിപണി അടക്കമുള്ളവ വികസിപ്പിക്കാനും പ്രതൃക്ഷമായും പരോക്ഷമായും വായ്പകൾ ലഭൃമാക്കാനും ലക്ഷ്യമിടുന്നു കോർപ്പറേറ്റ് സംവിധാനമായി വികസിപ്പിക്കുന്ന നാബ്ഫിഡിലൂടെ അടിസ്ഥാന സൌകരൃ വികസന മേഖലയിൽ കൂടുതൽ നിക്ഷേപങ്ങൾക്കും വഴി തുറക്കും സമാന രീതിയിൽ പ്രവർത്തിക്കുന്ന നിരവധി ധനകാര്യ സ്ഥാപനങ്ങളെ പഠിച്ച ശേഷമാണ് നാബ്ഫിഡിന് രൂപം നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ വൃക്തമാക്കി

വിവിധ വ്യാപാര സംഘടനകളും കോർപ്പറേറ്റ് സംഘടനകളുമാണ് ആറ് മാസത്തെ വായ്പ മോറട്ടോറിയം നീട്ടണമെന്ന ആവശ്യവുമായി ഹർജികൾ സമർപ്പിച്ചിരുന്നത് വസ്തുനിഷ്ഠമല്ലാത്ത കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങളിലേ കോടതിക്ക് ഇടപെടാനാകൂ എന്ന് ജസ്റ്റിസ് അശോക് ഭൂഷന്റെ നേതൃത്വത്തിലുള്ള ബഞ്ച് പറഞ്ഞു

ഐക്യരാഷ്ട്ര സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ ഭാഗമായുള്ള സാർവത്രിക ആരോഗ്യ പരിരക്ഷ എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സന്ദേശത്തിൽ വ്യക്തമാക്കി ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായ ഇൻഷുറൻസ് പദ്ധതി ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയ്ക്ക് കീഴിൽ ഇത് നടപ്പാക്കി വരികയാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു

പശ്ചിമബംഗാളിലെ കാന്തിയിൽ രാവിലെയും അസമിലെ ബിഹ്പുരിയ സിപാജ്ഹർ എന്നിവിടങ്ങളിൽ ഉച്ചയ്ക്ക്ശേഷവുമാണ് ശ്രീ മോദി പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുക

ഡി

പിന്നീട് കോട്ടയം കാഞ്ഞിരപ്പള്ളിയിലും കൊല്ലം പുറ്റിങ്ങലിലും ശ്രീ

വൈകിട്ട് പാലക്കാട് കഞ്ചിക്കോട്ട് നടക്കുന്ന റോഡ്ഷോയിൽ പങ്കെടുത്ത ശേഷം ശ്രീ

ഉച്ചതിരിഞ്ഞ് മൂന്നിന് നടക്കുന്ന ചടങ്ങിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണും

സി ജനറൽ സെക്രട്ടറി കെ

തിരുവനന്തപുരത്തെ കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിലാണ് ചടങ്ങ്

തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയും എ ഐ

എം

ഐ ആത്വാലെ വിഭാഗം ഗവർണർ ഭഗത് സിംഗ് കോശ്യാരിയെ ഇന്നലെ കണ്ടു നിരവധി പോലീസ് ഉദ്യോഗസ്ഥർക്കും മന്ത്രിമാർക്കും എതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാന ഭരണകൂടത്തിൽ ജനങ്ങൾക്ക് വ്യിശ്വാസം നഷ്ടമായതായും ക്രമസമാധാന നിലൂ തൂക്ക്ർന്നതായും നേതാക്കൾ ഗവർണറെ ധരിപ്പിച്ചു അതിനിടെ മഹ്റാർാഷ്ട്ര ആഭ്യന്തരമന്ത്രി അനിൽ ദേശ്മുഖിനെതിരെ മുൻ ്മുംബ്ബെ പോലീസ് കമ്മീഷണർ ഉയർത്തിയ ആരോപണങ്ങളിൽ സീ ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഒരു അഭിഭാഷിക്കൻ ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്

ടാർപോളിനും മുളയും കൊണ്ട് നിർമ്മിച്ച ഷെഡുകളിലാണ് രോഹിൻഗ്യൻ അഭയാർത്ഥികൾ കഴിഞ്ഞിരുന്നത് ഇത്തരം പതിനായിരം ഷെഡുകൾ കത്തിനശിച്ചതാ യാണ് സൂചന

ജനുവരിയിലും ഈ അഭയാർത്ഥി കേന്ദ്രത്തിൽ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്

അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ നാല് വിക്കറ്റ് വീഴ്ത്തിയ പ്രസിദ്ധ് കൃഷ്ണയാണ് ഇംഗ്ലണ്ടിനെ തകർത്തത്

അർദ്ധ സെഞ്ചറികൾ നേടിയ ശിഖർ ധവാന്റെയും കെ എൽ രാഹുലിന്റെയും വിരാട് കോഹ്ലിയുടെയും കുണാൽ പാണ്ഡെയുടെയും മികവിലാണ് ഇന്തൃ കൂറ്റൻ സ്കോർ നേടിയത്

ലോകകപ്പിലെ ഇന്ത്യയുടെ രണ്ടാം സ്വർണ്ണ മെഡലാണ് ഇത് ഇതോടെ ഇന്ത്യയ്ക്ക് രണ്ട് സ്വർണ്ണം ഉൾപ്പെടെ നാല് മെഡലുകളായി

ആയിരം മെട്രിക് ടൺ അരിയും ഒരു ലക്ഷം ഹൈഡ്രോക്സി ക്ലോറോക്വീൻ ഗുളികകളും ദൌത്യത്തിന്റെ ഭാഗമായി ഇന്ത്യ ദ്വീപ് രാഷ്ട്രത്തിന് സമ്മാനിച്ചു മഡഗാസ്കർ പ്രധാനമന്ത്രി മഡഗാസ്കറിലെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധി ഐ

ഒരു വർഷത്തിനിടെ ഇത് രണ്ടാം തവണയാണ് ഇന്ത്യൻ നാവികസേന കപ്പൽ മഡഗാസ്കർ സന്ദർശിച്ച് സഹായങ്ങൾ വിതരണം ചെയ്യുന്നതെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു